ആറിന്റെ സഹകരണത്തോടെ ് ഭാരത് ്ബയ്യോടെക് നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം കോവാക്സിൻ ് കൃത്നീ വാക്സിനുകൾക്കാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുള്ളത്

തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്ന് ആരംഭിക്കും പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങളാണ് ശിരസിലേറ്റി കാൽനടയായി സന്നിധാനത്തെത്തിക്കുന്നത് മകര സംക്രമ സന്ധ്യയിൽ തിരുവാഭരണങ്ങൾ ്അണിയിച്ചായിരിക്കും ദ്വീപാരാധന